തിരുവനന്തപുരത്ത് മിന്നൽ പണിമുടക്ക് നട്ടത്തിയ കെഎ സ്ആർടിസി ജീവനക്കാർക്കെതിരായ രൂടപട്ടികൾ ചർച്ച ചെയ്യാൻ നാളെ ഉന്നത തല യോഗം ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ പ്രട്ടിക പ്രഖ്യാപിച്ചു

ലോക വനിതാദിനമായ മാർച്ച് എട്ടിനെ വരവേൽക്കാൻ ഒരു ക്കങ്ങൾ അവസാനഘട്ടത്തിൽ കോഴിക്കോട്ട് ഫിയസ്റ്റോ അഖിലേന്ത്യാ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻഓവർസീസ് ബാങ്കും കെഎസ്ഇ ബിയും ജേതാക്കൾ

ഇറ്റലിയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നവരോട് കൊറോണ വൈറസ്ബാധയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന നിർദേശം ഈ മാസം പത്തുമുതൽ നിലവിൽ വരുമെന്ന് ആരോഗ്യ മന്ത്രാലയ ത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി സഞ്ജീവകുമാർ അറിയിച്ചു

ഇറാനിൽ ഇന്ത്യക്കാരിൽ ആർക്കും കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു

മൂന്ന് പേർ മെഡിക്കൽ കോളജിലും ഒരാൾ ബീച്ച് ആശുപത്രിയിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് കഴിയുന്നത് തൃശൂർ ജില്ലയിൽ കൊറോണ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇന്നലെ ചേർന്ന അടിയന്തര യ്യോഗം തീരുമാനിച്ചു കൊറോണ സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവരെ പ്രത്യേകമായി നിരീക്ഷിക്കാനും നടപടി എടുക്കും വയനാട് ജില്ലയിൽ പത്തുപേരാണ് കൊറോണ നിരീക്ഷണത്തിൽ കഴിയുന്നത്യ റിസ്റോർട്ടുകളിൽ എത്തുന്ന വിദേശികളുടെയും ഇതര സംസ്ഥാനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ബുധനാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തിയ കെഎസ്ആർടിസിജീവനക്കാർക്കെതിരായ നടപടികൾ ചർച്ച ചെയ്യാൻ നാളെ തീരുവനന്തപുരത്ത് ഉന്നതതലയോഗം ചേരും

ജില്ലാ കലക്ടർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് കൈമാറി

മിന്നൽ പണിമുടക്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റോഡിൽ ബസ്സുകൾ നിർത്തിയിട്ട ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെന്റ് ചെയ്തേക്കും

അവശ്യ സർവീസ് ഉറപ്പാക്കൽ നിയമപ്ര കാരം ഡ്രൈവർമാർക്കെതിരെ നടപടിക്ക് ജില്ലാകലക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട് ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു

എം ടി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരും എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സി ആർ പ്രഫുൽ കൃഷ്ണനാണ് യുവ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്

വനിതകൾക്ക് ആദ്യമായി മൂന്നിൽ ഒന്ന് പ്രാതിനിധ്യം പട്ടി കയിൽ നൽകിയതായി കെ സുരേന്ദ്രൻ അറിയിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹി പട്ടിക കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു

രമ്യാഹരിദാസ് എം പി ക്കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ വിദ്യാബാലകൃഷ്ണൻ എന്നിവരും കോട്ടയം സ്വദേശി അബ്രഹാം റോയ്മാണിയുമാണ് കേരളത്തിൽ നിന്ന് ജനറൽ സെക്ര ട്ടറിമാരായത് സാമ്പത്തിക പ്രശ്നം നേരിടുന്ന യെസ് ബാങ്കിൽ നിന്ന് നിക്ഷേപർക്ക് പിൻവലിക്കാവുന്ന തുക അൻപതിനായിരം രൂപയാക്കി നിശ്ചയിച്ച് ധനമന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു

എന്നാൽ അടിയന്തര ചികിത്സ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പരിധിയിൽ ഇളവ് നൽകും യെസ് ബാങ്കിലെ നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും റിസർവ്വ് ബാങ്ക് അറിയിച്ചു ലോക വനിതാദിനമായ മാർച്ച് എട്ടിനെ വരവേൽക്കാൻ രാജ്യമെങ്ങും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി എന്റെ അവസരം എന്റെ അവകാശം എന്ന വനിതാദിന സന്ദേശം സമൂഹത്തിലെത്തിക്കാൻ കുടുംബശ്രീ അടക്കം സംഘടനകൾ സംസ്ഥാനത്ത് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്

വിവിധ മേഖലകളിൽ കഴിവും പ്രാഗത്ഭ്യവും തെളിയിച്ച വനിതകളെ പരിചയപ്പെടുത്തുകയാണ് ആകാശവാണി വാർത്തകളിലൂടെ കാസർകോഡ് ജില്ലയിലെ എന്റോസൾഫാൻ ദുരിത ബാധിതർക്കായി പോരാടി അനുകൂല കോടതിവിധി നേടിയ ലീലാകുമാരിഅമ്മയെ പറ്റി ആകാശവാണി കാസർകോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്

രണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സർത്തിലാണ് ഐഒബി ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്

മികച്ച വനിതാ താരമായി കെഎസ്ഇബിയുടെ ഇ കെ അമൃത സ്വർണ മെഡൽ നേടി അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് രാവിലെ കലിക്കറ്റ് ക്യാമ്പസിൽ തുടങ്ങും

ചാമ്പ്യൻഷിപ്പ് വൈകിട്ട് വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്യും ാലക്കാട് ജില്ലയിലെ ആറ് അണക്കെട്ടുകളുടെ അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജലസേചന വകുപ്പ് യോഗം ചേർന്നു

തൊടുപുഴയില്ലി സിറ്റിംഗിൽ മൊഴി രേഖപ്പെടുത്തലിന് ശേഷം സംസാരിക്കുകൃയ്ായിരുന്നു അദ്ദേഹം